ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരള പര്യടനത്തിന് ഇന്ന് തുടക്കം

സമൂഹത്തിൽ ശാസ്ത്രാവബോധം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ശാസ്ത്ര മന്ത്രാലയം ഭൌമ ശാസ്ത്ര മന്ത്രാലയം എന്നിവ വിജ്ഞാനഭാരതിയുടെ സഹകരണത്തോടെയാണ് ശാസ്ത്രോത്സവം സംഘടിപ്പിക്കുന്നത്

രും അലിഗഡ് മുസ്ലീം സർവ്വകലാശാലയുടെ ശതാബ്ദി ആഘോഷ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ പങ്കെടുക്കും

ശതാബ്ദി ആഘോഷ തപാൽ സ്റ്റാമ്പും ചടങ്ങിൽ പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും

കേന്ദ്രമന്ത്രി രമേഷ് പൊക്രിയാൽ നിഷാങ്കും പരിപാടിയിൽ പങ്കെടുക്കും

മറ്റു ജില്ലകളിൽ ഇതിൽ താഴെയാണ് പുതിയ രോഗികളുടെ എണ്ണം

കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് കവയിത്രി സുഗതകുമാരിയേയും കോൺഗ്രസ് നേതാവ് വി

ഇവരുടെ ആരോഗ്യ നില തൃപ്തികരമാണെന്ന് മെഡിക്കൽ കോളജ് കേന്ദ്രങ്ങൾ അറിയിച്ചു രുര ബ്രിട്ടണിൽ ജനിതക മാറ്റം സംഭവിച്ച കോവിഡ് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ ബ്രിട്ടണിൽ നിന്ന് വരികയും പോവുകയും ചെയ്യുന്ന വിമാന സർവ്വീസുകൾ ഇന്ത്യ നിരോധിച്ചു

രും കോവിഡ് ജാഗ്രത കൈവിടാതെ പ്രതിരോധ മരുന്ന് വരുന്നതുവരെ കാത്തിരിക്കണമെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ

ചെക്കുട്ടി ആകാശവാണിയോട്

കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും ഇവയുടെ പ്രവർത്തനം ബിയർ വൈൻ പാർലറുകൾ ക്ലബ്ബുകൾ എന്നിവയ്ക്കും ഇന്ന് മുതൽ പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ട് ബാറുകളിൽ നിന്നും ബിയർ വൈൻ പാർലറുകളിൽ നിന്നും മദ്യം പാഴ്സലായി വിൽക്കുന്നത് നിർത്തലാക്കി ബിവറേജസ് കൺസ്യൂമർ ഫെഡ് ഔട്ലെറ്റുകളുടെ പ്രവർത്തന സമയം രാവിലെ പത്ത് മുതൽ രാത്രി ഒൻപത് വരെയാക്കിയിട്ടുണ്ട് രുര സംസ്ഥാനത്തെ കോളേജുകൾ ജനുവരി നാലിന് തുറക്കുന്നത് സംബന്ധിച്ച ഉത്തരവ് ഇന്ന് ഇറങ്ങിയേക്കും ഇതുമായി ബന്ധപ്പെട്ട മാർഗനിർദേശങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു അവസാന വർഷ ഡിഗ്രി പിജി ക്സാസുകളായിരിക്കും ആദ്യം ആരംഭിക്കുന്നത് രും കോവിഡ് സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പാവപ്പെട്ടവർക്ക് നൽകിയിരുന്ന സൌജന്യ ഭക്ഷ്യധാന്യ വിതരണം തുടരണമെന്നാവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തിന് കത്തയച്ചു മന്ത്രി പി തിലോത്തമൻ ഭക്ഷ്യപൊതുവിതരണ മന്ത്രാലയത്തിനാണ് ഈ ആവശ്യം ഉന്നയിച്ച് കത്ത് നൽകിയത് ഈ മാസം മുതൽ ധാന്യ വിതരണം സംബന്ധിച്ച നിർദേശം സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ലെന്ന് തിലോത്തമൻ കത്തിൽ അറിയിച്ചു രുര മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്തിയുമായിരുന്ന മോത്തിലാൽ വോറയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അനുശോചനം അറിയിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകീട്ടായിരുന്നു മോത്തിലാൽ വോറയുടെ അന്ത്യം

രണ്ട് തവണ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായും ഉത്തർപ്രദേശ് ഗവർണറായും മോത്തിലാൽ വോറ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രുര മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരള പര്യടനം ഇന്നാരംഭിക്കും രാവിലെ പത്തരക്ക് കൊല്ലത്ത് നിന്നാണ് പര്യടനത്തിന് തുടക്കം ജില്ലയിലെ ക്ഷണിക്കപ്പെട്ട സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരുമായി അദ്ദേഹം കൂടിക്കാഴ്ച്ച നടത്തും തുടർന്ന് പത്തനംതിട്ടയിലേക്ക് മുഖ്യമന്ത്രി പോകും യാത്രയിൽ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളും നിർദേശങ്ങളും നിന്ന് പരിഗണിച്ചായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന്റെ പ്രകടന പത്രിക തയാറാക്കുന്നത്

രംഭ എടപ്പാൾ മേൽപ്പാലം ഫെബ്രുവരിയിൽ കമ്മീഷൻ ചെയ്യുമെന്ന് മന്ത്രി ഡോ

കോവിഡിനെ തുടർന്ന് മന്ദഗതിയിലായ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ എടപ്പാളിലെത്തിയതായിരുന്നു മന്ത്രി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം രമേ സിസ്റ്റർ അഭയക്കൊലക്കേസിൽ തിരുവനന്തപുരത്തെ പ്രത്യേക സിബിഐ കോടതി ഇന്ന് വിധി പറയും

ഫാദർ തോമസ് കോട്ടൂർ സിസ്റ്റർ സ്റ്റെഫി എന്നിവരാണ് കേസിലെ പ്രതികൾ

മറുപടിയില്ലാത്ത ഒരു ഗോളിന് ബെങ്കലൂരു എഫ്സി യെയാണ് ബഗാൻ തോൽപ്പിച്ചത് ഇന്ന് വൈകീട്ട് ഏഴരക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷ എഫ്സിയെ നേരിടും രംഭ മണ്ഡലപൂജക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്കഅങ്കിയുമായി രഥഘോഷയാത്ര അൽപസമയത്തിനകം ആറൻമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാരംഭിക്കും

കോവിഡ് മാനദണ്ഡങ്ങൾ മൂലം നിയന്ത്രണങ്ങളോടെയാണ് ഇത്തവണത്തെ തങ്കഅങ്കി ഘോഷയാത്ര ഇന്ന് രാത്രി ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ ആദ്യ ദിവസത്തെ യാത്ര അവസാനിക്കും രും വനാതിർത്തികളിൽ താമസിക്കുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരാണെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു വന്യമൃഗശല്യം ഉണ്ടാകുന്ന എല്ലാ സ്ഥലങ്ങളിലും സൌരോർജ്ജ വേലികൾ സ്ഥാപിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു മലയാറ്റൂർ മൂളംകുഴിയിലെ നാനൂറോളം കുടുംബങ്ങളുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സൌരോർജ്ജ വേലികൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന് കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് നിർദേശം നൽകി രും കൊച്ചി പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിൽ റിമാന്റിൽ കഴിയുന്ന മുൻ മന്ത്രി വി

രംഭ കോഴിക്കോട് കോർപ്പറേഷനിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി

മികച്ച ചെറുകഥാ പുരസ്കാരം സാറാ ജോസഫും മികച്ച നോവൽ പുരസ്കാരം സുഭാഷ് ചന്ദ്രനും രാധാലക്ഷ്മി പത്മരാജനിൽ നിന്ന് ഏറ്റുവാങ്ങി രും ഗ്രാമീണ വീടുകളിൽ പൈപ്പിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ ഒരു ലക്ഷത്തിലേറെ കണക്ഷൻ നൽകിയതായി മന്ത്രി കെ

രുര കൊച്ചി കാക്കനാട്ട് ആരംഭിച്ച ഫാംശ്രീ ആഗ്രോ മാർട്ട് നബാർഡ് കേരള റീജ്യണൽ ചീഫ് ജനറൽ മാനേജർ പി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

കർഷകരിൽ നിന്ന് ഇടനിലക്കാരില്ലാതെ നേരിട്ട് വാങ്ങാൻ ലക്ഷ്യമിട്ടാണ് ആഗ്രോ മാർട്ട് ആരംഭിച്ചത്

രുര കോഴിക്കോട് പെരുവണ്ണാമൂഴി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പോഷകാഹാരതോട്ടം പദ്ധതിക്ക് തുടക്കമായി വിജ്ഞാന കേന്ദ്രം ദത്തെടുത്ത കോട്ടൂർ ഗ്രാമത്തിലാണ് പച്ചക്കറി കൃഷിയിലൂടെ പോഷകാഹാരം ഉറപ്പുവരുത്തുകയെന്ന പദ്ധതി നടപ്പാക്കുന്നത് രുര കണ്ണൂർ തോട്ടട ബീച്ചിനടുത്ത് അഴിമുഖത്ത് കളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് രണ്ട് കുട്ടികളെ കാണാതായി ആദികടലായിയിലെ മുഹമ്മദ് ഷറഫ് ഫാസിൽ മുഹമ്മദ് റിനാദ് എന്നിവരാണ് ഇന്നലെ വൈകീട്ട് അപകടത്തിൽപ്പെട്ടത്